നിയമനത്തിനെതിരായു ഫർജി പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് പിന്മാറ്റി

കണ്ണൂർ സർവീസുകൾ ആരംഭിക്കുമെന്ന് വിമാനക്കമ്പനികൾ

സി

കോഹ്ലിയും ഒന്നാം സ്ഥാനം നിലനിർത്തി

ഇതിന്റെ ഭാഗമായ യുവ പ്രവാസി സമ്മേളനത്തിൽ ്ട്ക്ക്ര്ദ്മന്ത്രിമാരായ സുഷമ സ്വരാജ് ദിന രാജ്യവർദ്ധൻ സിംഗ് റ്റ്സ്ഫോഡ് തുടങ്ങിയവർ യുവ പ്രവാസികളെ അഭിസംബോധന ചെയ്തു

ഇന്ത്യയുടെ വിജയഗാഥയിൽ പങ്കാളികളാകുന്നതിനുമുള്ള വേദിയാണ് പ്രവാസി ഭാരതീയ ദിവസ് എന്നും ശ്രീമതി

പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ പ്രവാസികളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ റാഥോഡ് പറഞ്ഞു പ്രവാസികളാണ് ഇന്ത്യയുടെ അംബാസിഡർമാരെന്നും രാജ്യത്തിന്റെ സംസ്കാരം ഭാഷ എന്നിവ കാത്തുസൂക്ഷിക്കുന്നതിൽ ഇവർ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശിന്റെ ഭരണസാരഥൃം ഏറ്റെടുത്ത ശേഷം നിക്ഷേപകമേഖലയിൽ സമൂലമായ മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി യോഗി ആദ്യത്യനാഥ് പറഞ്ഞു

ഏറ്റ്ദ്ദ്യാഗിക ഉദ്ഘാടനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിക്കും ഇന്ത്യാ സന്ദർശനത്തിനായെത്തിയ മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ് ജഗ്നോഥ് മുഖ്യാതിഥിയാകും സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപ്പതി രാംനാഥ് കോവിന്ദ് പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ സമർപ്പിക്കും

കഴിഞ്ഞ ഒരു വർഷത്തിനകം ത്രിപുര വൻ വികസനം കൈവരിച്ചതായി പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ എഴുതി ജനങ്ങളുടെ അഭിലാഷങ്ങൾ കണ്ടറിഞ്ഞ് ഏറ്റവും ധ്രുതഗതിയിൽ വളർച്ച സാധ്യമാക്കുകയാണ് ത്രിപുരയുടെ വികസന ഗാഥയെന്ന് ശ്രീ

രാജ്യത്തിന്റെ പുരോഗതിയിൽ മേഘാലയയുടെ സംഭാവന എടുത്തു പറയാവുന്നതാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സ്വാമികൾ നേതൃത്വം നൽകി സംസ്കാരം നാളെ വൈകുന്നേരം ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും

സംസ്ഥാനത്ത് മൂന്നു ദിവസത്തെ ദുഃഖാചരണം മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആത്മീയാചാര്യന്റെ വിയോഗത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി

നാഗേശ്വര റാവുവിനെ നിയമിച്ചതിനെതിരായ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിൻമാറി

റാവുവിനെ ഇടക്കാല മേധാവിയായി നിയമിച്ചതിനെതിരെ സന്നദ്ധ സംഘടന നൽകിയ പൊതുതാൽപ്പര്യ ഹർജി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചത്

മധ്യ കാശ്മീരിലെ ബുദ്ഗാം ജില്ലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ഏറ്റുമുട്ടലിലാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് ജില്ലയിലെ ഹപത്നർ ചരാർ ഇ ഷെരീഫ് മേഖലയിൽ സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിനിടെയാണ് വെടിവയ്പ്പുണ്ടായത് മേഖലയിൽ ഒരു തീവ്രവാദി കൂടി കുടുങ്ങിയിട്ടുള്ളതായി കരുതപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല

അനുമതി നിഷേധിക്കാൻ പാകത്തിൽ പ്പിമ്പാന്ത്താവളത്തിൽ യാതൊരു അറ്റക്കുറ്റപ്പണികളും നടക്കുന്നില്ല്ല്സ്റ്റ് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ക്ടോയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഹെലികോപ്റ്റർ ഇതേ ഇട്ടത്തിൽ ഇങ്ങിയിരുന്നതായും ശ്രീ ഗോയൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേയും ബി ജെ പിയുടേയും ജനകീയത ഭരണ കക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ഭയക്കുന്നതാണ് ഇതിന് കാരണമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു

അനേകം വിശ്വാസികളും ഭക്തരും സന്യാസികളും സ്നാനത്തിൽ പങ്കെടുത്തു കുംഭമേളയുടെ പ്രധാന ചടങ്ങാണ് പൌഷ് പൂർണ്ണിമ എന്ന് പണ്ഡിറ്റ് ശ്യാം രാജ് മിശ്ര ആകാശവാണിയോട് പറഞ്ഞു

മൂന്ന് ഷാഹിസ്നാനത്തോടൊപ്പം ആറ് പ്രധാന സ്നാന ദിവസങ്ങളാണ് ആകെ കുംഭമേളയിൽ ഉള്ളത്

ന്യൂഡൽഹിയിലെ നാഷണ്ടൽ ഗ്യാലറി ഓഫ് മോഡേൺ ആർട്ടിൽ വച്ച് സംഘടിപ്പിക്കുന്നു ലേല്തിൽ നിന്ന് സമാഹരിക്കുന്ന തുക നമാമി ഗംഗാ പദ്ധതിയ്ക്കായി വിനിയോഗിക്കുമെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു

ശ്രീമതി മമതാ ബാനർജി ശ്രീ രാഹുൽ ഗാന്ധി ശ്രീമതി മായാവതി ശ്രീ ചന്ദ്രശേഖരറാവു എന്നിവരെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത് ഫലത്തിൽ മോദി വിരുദ്ധ പ്രകടനമായി മാറിയ കൊൽക്കത്ത റാലിയിൽ രാഹുൽ ഗാന്ധിയുടെ അഭാവം ശ്രദ്ധേയമായെന്നും ശ്രീ

വിരുദ്ധ ആശയങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രചാരണത്തെയും രാഷ്ട്രം അംഗീകരിക്കില്ലെന്ന് ശ്രീ ജെയ്റ്റ്ലി കൂട്ടിച്ചേർത്തു

എയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു

എ സാധ്ന സിംഗിന് എതിരെ ദേശീയ വനിതാകമ്മീഷൻ നോട്ടീസയച്ചു

പി നേതാവ് മായാവതിക്കെതിരെ നടത്തിയ മോശം പരാമർശത്തിനാണ് കമ്മീഷൻ നോട്ടീസയച്ചത്

എയുടെ പരാമർശങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹവും സംസ്കാരശൂന്യവുമാണെന്ന് വിലയിരുത്തിയ വനിതാ കമ്മീഷൻ അവരിൽ നിന്ന് വിശദീകരണം തേടി

കെ നൽകിയ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി കേന്ദ്ര ഗവണ്മെന്റിന് നോട്ടീസയച്ചു

ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ ജി രാജഗോപാലന്റെ വാദം ജസ്റ്റിസുമാരായ എസ്

സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ കൂടുതൽ സർവീസുകൾ എർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനി സി ഇ ഒ മാരുമായി നടത്തിയ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് മറ്റു വിമാനത്താവളങ്ങളിലേക്കാൾ അമിതനിരക്ക് ഈടാക്കുന്നത് കുറയ്ക്കാൻ എയർ പ്പുള്ള്യ തയാറാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു